ത ഗ്രാമീണ മേഖലയിൽ ലോക്ക്ഡൌൺ കാലയളവിൽ ആവശ്യത്തിന് ശുദ്ധജലം എത്തിക്കാൻ ആരോഗ്യ മന്ത്രാലയം നിർദേശിച്ചു

പാവപ്പെട്ടവരുടേയും ദിവസക്കൂലിക്കാരുടേയും താൽപര്യങ്ങൾ കണക്കിലെടുത്തായിരിക്കും മാർഗ്ഗനിർദേശങ്ങൾ പുതിയ തയാറാക്കുകയെന്ന് ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു

ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം മാർഗ്ഗനിർദേശങ്ങൾ ചർച്ച ചെയ്യും ഹോട്ട്സ്പോട്ടുകളിലും കൂടുതൽ രോഗവ്യാപനമുണ്ടായ മേഖലകളിലും ഈ ആഴ്ച അതീവ ജാഗ്രത പുലർത്താനും പ്രധാനമന്ത്രി ഇന്നലെ ആവശ്യപ്പെട്ടു

അതിന് അനുസരിച്ച് നടപടികൾ കൈക്കൊള്ളണം

ഏറ്റവും കൂടുതൽ മരണം അമേരിക്കയിലാണ്

ദ്ദേ സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച എട്ട് പേരിൽ അഞ്ചുപേർ ദുബായിൽ നിന്ന് എത്തിയവരാണ് മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായി കണ്ണൂർ ജില്ലയിൽ നാലു പേർക്കും കോഴിക്കോട് ജില്ലയിലെ മൂന്നു പേർക്കും ഒരു കാസർകോട് സ്വദേശിക്കുമാണ് കോവിഡ് ബാധിച്ചത് കോഴിക്കോട്ടെ രണ്ടു പേർക്കും കണ്ണൂരിലെ ഒരാൾക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

ഇവരെ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗ തീരുമാന പ്രകാരം ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കും ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ടാണ്

കോയമ്പത്തൂർ ജില്ലയിൽ രോഗ വ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി

ഇന്നലെ രണ്ടു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

കോവിഡ് ബാധിതരായ പത്തു പേരും രോഗം മാറി ആശുപത്രി വിട്ടു ജില്ല കോവിഡ് മുക്തമായി തുടരാൻ ജില്ലാ ഭരണകൂടം ജാഗ്രത തുടരുകയാണ്

ഇവിടങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ പരിശോധന കർശനമാക്കി കൊല്ലം ജില്ലയിൽ ഇന്നലെ പുതുതായി ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചില്ല അഞ്ചു ദിവസം മുമ്പാണ് ജില്ലയിൽ അവസാനം രോഗം കണ്ടെത്തിയത്

ഇതിൽ ഒമ്പത് പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു

ജില്ലാ അതിർത്തികളിൽ പൊലിസും റവന്യു വകുപ്പും പരിശോധന കർശനമാക്കി

ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്

കെ ടി ജലീൽ സർവകലാശാല വൈസ് ചാൻസലർമാരുമായി ഇന്ന് ചർച്ച നടത്തും അക്കാഡമിക് കലണ്ടർ പരീക്ഷ നടത്തിപ്പ് ഗവേഷണ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ എന്നീ കാര്യങ്ങൾ ചർച്ചയായേക്കും

സാനിറ്റൈസറുകൾ ലഭ്യമല്ലാത്ത പല ഗ്രാമങ്ങളിലും മുൻകരുതലിന്റെ ഭാഗമായി ഇടക്കിടെ കൈ കഴുകേണ്ടി വരുന്ന സാഹചര്യം പരിഗണിച്ചാണ് നിർദേശം

കൊറോണാ ബാധയുടെ സാഹചര്യത്തിൽ ആഗോള സാമ്പത്തിക രംഗത്ത് മൂന്ന് ശതമാനം തകർച്ചയുണ്ടാകും

രുര ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അമേരിക്ക തൽക്കാലത്തേക്ക് നിർത്തി വെയ്ക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ബാധയുടെ ഗുരുതരാവസ്ഥ ലോകത്തെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ചാണ് നടപടി